പാർലമെന്റിന്റെഇരുസഭകളും പ്രക്ഷുബ്ദം

തുടർന്ന്കേരള നിയമസഭയില്ലും പ്രതിപക്ഷ ബഹളവുംഇറങ്ങിപ്പോക്കും

ഇറ്റലി ഇറാൻ ദക്ഷിണകൊറിയ ജപ്പാൻ എന്നിവിടങ്ങളിൽ നിന്നുംഇന്ത്യയിലേക്കുള്ളയാത്രക്കാരുടെവിസകൾറദ്ദാക്കി

ഈ വർഷത്തെ പുരസ്കാരങ്ങൾരാഷ്ട്രപതിരാംനാഥ്കോവിന്ദ്വിതരണംചെ യ്തു

രാജൃസഭ ചേർന്നയുടൻ പ്രതിപക്ഷം ഈ വിഷയത്തിൽ പ്രതിഷേധിച്ചതിനെ തുടർന്ന് സഭ ഇന്നത്തേക്കു പിരിഞ്ഞു ലോക്സഭ ഉച്ചവരെ നിർത്തിവെച്ചു ഇത് മൂന്നാം ദിവസമാണ് ഇതേ വിഷയത്തെ ചൊല്ലി പ്രതിപക്ഷം പാർലമെന്റിനെ പ്രക്ഷുബ്ദമാക്കുന്നത് രാജ്യസഭയിൽ മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം അനുവദിക്കില്ലെന്ന് അധൃക്ഷൻ എം

വെങ്കയ്യനായിഡു അറിയിച്ചെങ്കിലും പ്രതിപക്ഷം തൃപ്തരായില്ല വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഡി എം

പി ബി

എം സി ഇടതുകക്ഷികൾ സഭയുടെ നടുത്തളത്തിലെത്തി ബഹളംവെച്ചതോടെയാണ് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞത്

തുടർന്ന് വീണ്ടും ചേർന്നെങ്കിലും സഭ നടത്തിക്കൊണ്ടു പോകാൻ കഴിയാതിരുന്നതിനാൽ രണ്ട് മണിവരെ നിറുത്തി വച്ചു

നോവൽ കൊറോണ വൈറസിനെതിരെയുള്ള രാജ്യത്തെ തയ്യാറെടുപ്പുകളെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിപുലമായ അവലോകനം നടത്തി ഇക്കാരൃത്തിൽ എല്ലാ സംസ്ഥാനങ്ങളും മന്ത്രാലയങ്ങളും ജാഗരൂകരായി ഒരുമിച്ചു പ്രവർത്തിക്കുന്നു എന്ന് പ്രധാനമന്ത്രി ട്വിറ്റർ സന്ദേശത്തിൽ അറിയിച്ചു കൂട്ടായി പ്രവർത്തിക്കണമെന്നും പരിഭ്രാന്തരാകേ ആവശ്യമില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു

വോയ്സ് കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൌബയും ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ പ്രതിരോധ നടപടികൾ വിലയിരുത്തി

വിമാനത്താവളങ്ങളിലെ സ് ക്രീനിങ് സംവിധാനങ്ങൾ കർശനമാക്കാൻ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകി

ക്ലസ്റ്റർ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ജില്ലാ കളക്ടർമാരെ കൂടി ഉൾപ്പെടുത്താനും യോഗത്തിൽ തീരുമാനമായി

ഇറ്റലി ഇറാൻ ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഇന്ത്യയിലേയ്ക്ക് അനുവദിച്ച എല്ലാത്തരം വിസയും കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരമായി നിർത്തലാക്കി

വി ചാനലുകൾക്കും എഫ് എം റേഡിയോ ് ചാനലുകൾക്കും വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം നിർദ്ദേശം നൽകി കൊറോണ വൈറസിനെതിരെയുള്ള പ്രചാരണ അടയാളം ഉപയോഗിക്കാനും നിർദ്ദേശമുണ്ട്

വൃക്തി ശുചിത്വം പാലിക്കണമെന്നും ഇടയ്ക്കിടെ സോപ്പ് ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കണമെന്നും നിർദേശമു്

ആരോഗ്യപ്രശ്നങ്ങൾ അനുഭവപ്പെട്ടാൽ ഡോക്ടറുടെ സേവനം തേടണമെന്നും നിർദ്ദേശമുണ്ട്

സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന രാജ്യങ്ങൾക്ക് മാത്രമായുള്ള വിഹിതം മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങുന്നതിനോ ആരോഗൃ സേവനങ്ങൾക്കായോ ഉപയോഗിക്കാം സഹായം അഭ്യർത്ഥിക്കുന്ന രാജ്യങ്ങൾക്ക് പണം നൽകും

ഇറ്റലിയിൽ നിന്നും പ്രക്ഷാജസ്ഥാനിലെത്തിയ ദമ്പതികൾക്ക് കൊറോണ വൈറസ് ബാധയുണ്ടെന്ന് കണ്ടെത്തി

പുതിയ കൊറോണ ക്വൈറസ് ബാധ ചില ജില്ലകളിൽ കൂടി ശങ്കിക്കപ്പെടുന്നതിനെ തുടർന്ന് ഉത്തർപ്രദേശിലും കനത്ത ജാഗ്രത തുടരുകയാണ് കൊറോണ വൈറസ് ബാധ നേരിടുന്ന രാജ്യങ്ങളിൽ നിന്നെത്തുന്ന എല്ലാവരെയും വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയരാക്കുമെന്ന് ഉത്തർപ്രദേശ് ആരോഗ്യമന്ത്രി ജയ് പ്രതാപ് സിംഗ് പറഞ്ഞു

സംസ്ഥാനത്ത് സമാന്തര സ്വർണ രൂപപ്പെടുന്നുവെന്ന വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ വിപണി അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി സ്വർണത്തിന് ഈ വേ ്ബിൽ ഈ ഇൻവോയ്സ് പഴയ സ്വർണം വിൽക്കുമ്പോൾ ഉള്ള നികുതി എന്നിവ നിർബന്ധമാക്കാൻ ജി എസ് ടി നിയമത്തിൽ വ്യവസ്ഥ ചെയ്യണമെന്ന് ൂ ആവശ്യം ജി എസ് ടി കൌൺസിലിൽ സംസ്ഥാനം ഉന്നയിച്ചിട്ടു്ളന്റും ധനമന്ത്രി പറഞ്ഞു സ്വർണത്തിന്റെ അനധികൃത വൃപ്പാർം തടയുന്നതിന് കച്ചവട സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥരെട്ട് നീയമിക്കുന്നതുൾപ്പെടെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രീ പറഞ്ഞു സംസ്ഥാനത്തെ സ്വർണ വിപണന രംഗത്ത് വൻ ്ട് ആധോലോകം പ്രവർത്തിക്കുന്നതായി അടിയന്തര പ്രമേയ നോട്ടീസ്ക് ്നൽകിയ വി

രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രിയും അക്കാദമി അധ്യക്ഷനായ ഉത്തം പച്ചാർണെയും പങ്കെടുത്തു

ബംഗ്ളാദേശ്

ഇക്കാരൃത്തിൽ എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമേ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കൂ നിയമനിർമ്മാണ സഭയിൽ സംസ്ഥാന ഗവൺമെന്റ് അഞ്ച് ശതമാനം സംവരണം മുസ്തീങ്ങൾക്ക് നൽകണമെന്ന ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി നവാബ് മാലിക്കിന്റെ നിർദ്ദേശത്തിന്റു പിന്നാലെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന

പകരം സേതുഭാരതം പദ്ധതിയിൽ ഉൾപ്പെടുത്തി് ഇവയുടെ സ്ഥാനത്ത് മേൽപ്പാലം അടിപ്പാത എന്നിവ് നിർമ്മിക്കും

പ്രസിഡന്റ് ഡോണാൾട്ഡ് ട്രംപ് താലിബാൻ ഉപമേധാവി മുല്ല അബ്ദുൽഗനിയുമായി ഫോണിലൂടെ ചർച്ച നടത്തി

അരുണാചൽ പ്രദേശ് സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് നടത്തിയ പരീക്ഷയിലെ ക്രമക്കേടിനെപറ്റിയുള്ള ചോദൃത്തിന് മാധ്യമങ്ങളോട് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം ഇതു സംബന്ധിച്ച് വിദഗ്ധ സമിതിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

മധ്യപ്രദേശിലെ എട്ട് എം

നിലവിൽ പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്നും എല്ലാവരും ഒരുമിച്ചാണെന്നും അദ്ദേഹം പറഞ്ഞു